ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷാ ഇന്ന് കേരളത്തിൽ

ശ്രീലങ്കയിൽ രാഷ്ട്രീയ പ്രതിസന്ധി നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ മുൻ പ്രസിഡന്റ് മഹീന്ദ രാജപക്സെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു

ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും

ത്രിദിന ജപ്പാൻ സന്ദർശനത്തിനിടെ ശ്രീ

പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് പ്രധാനമന്ത്രി ഇവരുമായി ചർച്ചചെയ്യും

ഇന്തൃ ജപ്പാൻ പതിമൂന്നാമത് വാർഷിക ഉച്ചകോടിയിലാണ് ശ്രീ

ഇത് പന്ത്രണ്ടാം തവണയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്

സോളാർ പമ്പുകൾ സോളാർ പാനലുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി കൃഷിയിടങ്ങൾ പരമാവധി ഉപയോഗിക്കാനുള്ള യത്നത്തിലാണ് കർഷകർ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും എന്നത് ഗവൺമെന്റിന്റെ മുന്തിയ പരിഗണനയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഹരിതവിപ്ലവത്തിനുശേഷം രാജ്യം ഇപ്പോൾ വിവിധ കാർഷിക മുന്നേറ്റത്തിനായുള്ള പ്രയാണത്തിലാണെന്നും മേഖലയിലെ പ്രധാനമന്ത്രി വ്യക്തമാക്കി

നിലവിലുള്ള ഉപഭോക്താക്കളുടെ കാര്യത്തിൽ പുതിയ കണക്ഷൻ നൽകുന്ന കാര്യത്തിലും നിർദ്ദേശം ബാധകമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശം സ്വകാര്യ സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കരുതെന്ന് ചരിത്രവിധിയിൽ സുപ്രീംകോടതി കഴിഞ്ഞമാസം വൃക്തമാക്കിയിരുന്നു വിധിയുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രോണിക് കെ

സി സമർപ്പിക്കേണ്ടത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര ടെലികോം മന്ത്രാലയം വിവിധ മൊബൈൽ ഓപ്പറേറ്റർമാർക്ക് കൈമാറി ഉപഭോക്താവ് സ്വമേധയാ സമർപ്പിക്കുകയാണെങ്കിൽ തിരിച്ചറിയൽ ് രേഖ എന്ന നിലയ്ക്ക് ആധാർ ഉപയോഗപ്പെടുത്താമെന്നും നിർദ്ദേശ്ശിമുണ്ട്

അന്താരാഷ്ട്ര അതിർത്തി കടന്നുളള ജനസഞ്ചാരത്തിനും വ്യാപാരത്തിനും സുരക്ഷാ സഹകരണം ഉറപ്പിക്കാനും തീരുമാനമായി

വനവിഭവങ്ങളുടെ ലഹരിമരുന്നുകളുടേയും കളളക്കടത്ത് തടയാനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചതായി ഔദ്യോഗിക വാർത്താകുറിപ്പ് വൃക്തമാക്കുന്നു ഇന്ത്യയിലെത്തിയ മ്യാൻമാർ ഉന്നതതല സംഘം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി

ഇന്ത്യയും മ്യാൻമറുമായുള്ള ഗതാഗത സംവിധാനത്തിന്റെ പുരോഗതികൾ ഇരുവരും ചർച്ച ചെയ്തു ഇന്ത്യ മ്യാൻമർ തായ്ലന്റ് അന്താരാഷ്ട്ര പാതയുടെ നിർമ്മാണ പുരോഗതി യോഗത്തിൽ ചെയ്തു

പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രീഡം അലയൻസ് സഖ്യകക്ഷി ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചതോടെ റെനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് പുറത്തായി

വിക്രമസിംഗെയുമായുള്ള ഭിന്നതകളെത്തുടർന്നാണ് ഗവൺമെന്റിനുള്ള പിന്തുണ സിരിസേന പിൻവലിച്ചത് ഫെബ്രുവരിയിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ രാജപാക്സെയുടെ പാർട്ടി മികച്ച വിജയം നേടിയിരുന്നു

വിക്രമസിംഗെയുടെ യു

സാമ്പത്തികനയം മുതൽ ഭരണം വരെയുള്ള വിഷയങ്ങളിൽ സിരിസേനയും വിക്രമസിംഗെയും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വിത്യാസം നിലനിന്നതായും വിവരമുണ്ട് രജപക്സെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദൃശ്യങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്

ആകാശവാണിയുടെ എല്ലാ നിലയ്ക്ങ്ങളിലൂടെയും മൻ കി ബാത് ശ്രവിക്കാം

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് കേരളത്തിലെത്തും കണ്ണൂർ വിമാനത്തവളത്തിലിറങ്ങുന്ന അദ്ദേഹത്തിന് ബി ജെ

ജെ പി കണ്ണൂർ ജില്ലാ കമ്മറ്റിക്ക് വേണ്ടി നിർമ്മിച്ച മാരാർജി മന്ദിരത്തിന്റെ ഉദ്ഘാടനം അമിത് ഷാ നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പൊതു സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും തുടർന്ന് അമിത്ഷാ പിണറായിയിൽ കൊല്ലപ്പെട്ട ബി ജെ പി പ്രവർത്തകരുടെ വീട്ട് സന്ദർശിക്കും ഇന്ന് വൈകിട്ട് നാലുമണിക്ക് വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാ സമാധി നവതി ആചരണത്തിന്റെ സമാപന സമ്മേളനവും ശ്രീ അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും

സാമൂഹിക പ്രവർത്തകൻ ഡോ

നാളെ വൈകിട്ട് കോട്ടമൈതാനത്തു നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

പ്രതീക്ഷയോടെയാണ് ഏഷ്യൻ ഗെയിംസിലെ സുവർണ ജേതാക്കളായ ജപ്പാനുമായി ഏറ്റുമുട്ടുന്നത്

നാളെയാണ് ഫൈനൽ

രണ്ടാം ഏകദിനം സമനിലയിൽ ആയിരുന്നു

ആറെണ്ണം രാജ്നന്ദ് ഗാവിലാണ്

കൂടുതൽ കുറവ് ഇസ്തറിലും കൊണ്ടഗാവിലുമാണ് അഞ്ചു വീതമാണ് സ്ഥാനാർത്ഥികൾ

നാമനിർദ്ദേശപത്രിക സമർപ്പിക്കാനുളള അവസാന തീയതി നവംബർ രണ്ട് ആണ്

വിദേശകാര്യമന്ത്രി എന്ന നിലയ്ക്ക് ശ്രീമതി സുഷമാ സ്വരാജിന്റെ പ്രഥമ ഖത്തർ കുവൈറ്റ് സന്ദർശനമാണിത്

ജപ്പാനുമായി ചേർന്നാണ് പുതിയ മിസൈൽ രൂപകൽപ്പന ചെയ്തത് പരീക്ഷണം വിജയകരമാണെന്ന് മിസൈൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു